ആരോപണത്തിന്റെ പേരിൽ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹൂൽഗാന്ധിയ്ക്കെതിരെ ബി

അന്തരീക്ഷ വായുവിന്റെ നിലവാരം കണ്ടെത്തുന്നതിനുള്ള ന് നൂതന സംവിധാനം കേന്ദ്രമന്ത്രി ഹർഷ വർദ്ധൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി

ഇന്ത്യ സമനിലയിൽ തളച്ചു

കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി

പാർലമെന്റിന്റെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ ഇളവുകൾ നിലവിൽ വരും

റിട്ടേൺ സമർപ്പണം ലളിതമാക്കിയതാണ് സുപ്രധാന തീരുമാനങ്ങളിലൊന്ന് അഞ്ചുകോടി രൂപവരെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് ഇനി നാലു മാസത്തിലൊരിക്കൽ റിട്ടേൺ സമർപ്പിച്ചാൽ മതി നിലവിൽ മാസംതോറും റിട്ടേൺ നൽകേണ്ടിയിരുന്നു അതേസമയം നികുതി മാസംതോറും നൽകണം

ജെ പി എം

ലോകസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും എതിരായി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്

പി മാരായ നിഷികാന്ത് ദുബെ അനുരാഗ് താക്കൂർ ദുഷ്യന്ത് സിംഗ് പ്രഹ്താദ് ജോഷി എന്നിവരാണ് നോട്ടീസ് നൽകിയത് ഫ്രാൻസുമായുള്ള യുദ്ധവിമാനകരാറിനെക്കുറിച്ച് പ്രതിരോധമന്ത്രി കളവ് പറയുകയാണെന്നും കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് അറിയിച്ചെന്നുമായിരുന്നു രാഹുലിന്റെ പ്രസ്താവന

ഇ

തൽസമയം ദൃശ്യമാകുന്ന വിവരങ്ങൾക്ക് അനുസരണമായ മുൻകരുതലുകളെടുക്കാൻ സ്ട്വിധാനം സഹായകമായിരിക്കും ഡൽഹി പൂള്ളെണ് മുംബൈ അഹമ്മദാബാദ് എന്നീ നാല് നഗരങ്ങളിൽ ഈ സുംവിധ്യാനം സ്ഥാപിച്ചിട്ടുള്ളതായി കേന്ദ്രമന്ത്രി പറഞ്ഞു

ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി വസുന്ധര രാജിയെ വീണ്ടും നിയോഗിക്കുമെന്ന് പാർട്ടി അദ്ധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു വസുന്ധര രാജിയുടെ നേതൃത്വത്തിൽ പാർട്ടി വൻഭൂരിപക്ഷത്തോടെ സംസ്ഥാനത്ത് അധികാരത്തിലേറുമെന്നും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു ജയ്പൂരിൽ ഇന്നലെ നടന്ന ബി ജെ പി സംസ്ഥാന പ്രവർത്തക സമിതി സമാപന യോഗത്തിൽ സംസാരിക്കുയായിരുന്നു ശ്രീ അമിത്ഷാ

റഷ്യയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളെ തിരിച്ചറിയുന്നതിനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം തേടുന്നത് അമേരിക്കയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി വ്യാപാരബന്ധത്തിലേർപ്പെടുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ വൃവസ്ഥ ചെയ്യുന്ന നിയമമാണ് കാറ്റ്സ

തുടർന്നുണ്ടായ കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും വെള്ളപ്പൊക്ക് ഭൂഷ്ണിയിലാണ് പ്രകൃതി ക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങളിൽ അടിയന്തിരമായി ആശ്വാസ നടപടികളെടുക്കാൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് നിർദ്ദേശം നൽകി

പുൽവാമ ജില്ലയിലെ തഹാബ് മേഖലയിൽ സൈനൃത്തിന്റെ ബാരൽ ഗൺ ലോഞ്ചർ വഹിച്ചുകൊണ്ടുവന്ന വാഹന വ്യൂഹത്തിന് നേരെയാണ് അജ്ഞാതർ വെടി ഉതിർത്തത്

നിരവധി തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ടതായി സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു പോലീസിന്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് രക്ഷാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്

കമ്മീഷൻ അദ്ധ്യക്ഷൻ എൻ

സിങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ശക്തികാന്തദാസ് ഡോ അനൂപ്പ് സിംഗ് ഡോ അശോക് ലാഹ്രി ഡോ രമേശ് ചന്ദ് എന്നീ അംഗങ്ങളും സെക്രട്ടറി അരവിന്ദ് മേത്തയും ഉൾപപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാർ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി സം ്ലം ചർച്ച നടത്തും സന്ദർശനത്തിന് മുന്നോടിയായി സാമൂഹിക സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഗുജറാത്ത് അക്കൌണ്ടന്റ് ജനറലുമായി ചർച്ച നടത്തി

സർവ്വകലാശാലകളുടെ ചാൻസലർകൂടിയായ കേരള ഗവർണ്ണർ ജസ്റ്റീസ് പി സദാശിവം അദ്ധ്യക്ഷതവഹിക്കും

അടുത്ത മൂന്നു വർഷത്തേക്കാണ് നിയമനം ഇപ്പോൾ പ്രൊഫസർ രാജ്കുമാർ ബനാറസ് ഹിന്ദു സർവ്വകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മേധാവിയും ഡീനുമായി പ്രവർത്തിച്ചുവരികയാണ് നിലവിലെ വൈസ്ചാൻസർ പ്രൊഫസർ അരുൺകുമാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും

എൽ എൻ പ്യർട്ടി നേതാവുമായ ഹാനീഫ് അബ്ബാസിയെ ജീവപര്യന്തം തടവിന് പാടകിസ്ഥാൻ കോടതി ശിക്ഷിച്ചു

റാവൽ പിണ്ഡ്രി മണ്ഡലത്തിൽ അവാമി മുസ്തീം ലീഗ് സ്ഥാനാർത്ഥി ഷെയ്ക്ക് റഷീദിനെതിരെയാണ് അബ്ബസി മൽസരിക്കുന്നത്

സംസ്ഥാനത്തെ അറുപതിനായിരം കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള വൈദ്യുത കമ്പികളെയാണ് കേബിളുകളാക്കി മാറ്റുന്നത്

ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കിടയിലെ നിശബ്ദ വിപ്തവമാണ് സ്റ്റുഡൻസ് പൊലീസ് കേഡറ്റ് പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു

ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ വെള്ളപ്പിറ്റിക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും നാശനഷ്ടങ്ങൾ കണക്കാക്കാനായി വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ ക്ട്രിറ്റ് മന്ത്രിതല സമിതിയെ പത്തു ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തേക്ക് അയയ്ക്കും സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും സംസ്ഥാനത്തിന് കൂടുതൽ ധനസഹായം അ നുവദിക്കുകയെന്നും മന്ത്രിമാർ അറിയിച്ചു

കോമളപുരം ആര്യാട് എന്നിവിടങ്ങളിലെ ദുരി താശ്ചാസ ക്യാമ്പുകൾ സന്ദർശിച്ച കേന്ദ്ര മന്ത്രിമാർ കുട്ടനാട് മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തി

സുധാകരൻ വി എസ് സുനിൽ കുമാർ ചീഫ് സെക്രട്ടറി ടോം ജോസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി

സംസ്ഥാനത്തിന്റെ ആവശ്യാനുസരണം അടിയന്തിര സഹായങ്ങൾ ലഭ്യമാക്കുന്നതായിരിക്കുമെന്നും കിരൺ റിജിജു പറഞ്ഞു കടൽഭിത്തികളും പുലിമുട്ടും നിർമിക്കുന്ന കാര്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചർച്ച ചെയ്ത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന് അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു